സുരക്ഷാ സ്ഥിതിഗതികൾ വിലയ്ടിരുത്തും

കേരളത്തിൽ രണ്ടാം വർഷ ഹയർസെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷാഫലവും പ്രസിദ്ധീകരിച്ചു

ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹ്യക്ടർണം ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഏറെ പ്രധാനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാമ്പിത്തിക് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരണം വേണം ആരോഗൃ രംഗ്പ്പും ജനങ്ങളും ഒരുപോലെ വെല്ലുവിളി നേരിടുന്ന സമയമാണ് ഇത് മനുഷൃത്വപരമായ മനുഷൃത്വത്തിൽ അധിഷ്ഠിതമായ ആഗോളവത്ക്കരണത്തിന് ചുക്കാൻ പിടിക്കാൻ ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും സാധിക്കും പുനരുത്പാദ ഊർജ്ജ മേഖലയിൽ യൂറോപ്പിൽ നിന്ന് കൂടുതൽ നിക്ഷേപവും സാങ്കേതിക വിദ്യയും ക്ഷണിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും സ്വാഭാവിക പങ്കാളികളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സമ്മേളനം നടക്കുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിന് നല്കുന്ന പ്രാധാനൃം വളരെ വലുതാണെന്നും ഇതിൽ നന്ദിയുണ്ടെന്നും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ പറഞ്ഞു

കരസേനാ മേധാവി എം

നരവനേ അദ്ദേഹത്തെ അനുഗമിക്കും

അതിർത്തിയിൽ ഇന്ത്യാ ചൈന സംഘർഷ്ക ഉടലെടുത്ത ശേഷം രാജ്യരക്ഷാമന്ത്രി നടത്തുന്ന ആദ്യ ലഡാക്ക് സന്ദർശനമാണിത് കിഴക്കൻ പിർപഞ്ചാലിലെ റോഹ്താങ് ചുരത്തിൽ നിർമ്മിക്കുന്ന അടൽ ടണലും രാജ്യരക്ഷാമന്ത്രി സന്ദർശിക്കും ലേ മണാലി ഹൈവേ ഇതുവഴിയാണ് കടന്നു പോകുന്നത്

നിർമ്മാണം പൂർത്തിയായാൽ രാജ്യത്തെ ഏറ്റവും നീളമുള്ള റോഡ് ടണലായിരിക്കും അടൽ ടണൽ ലഡാക്കിലെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കാൻ സൈന്യത്തിന് പുതിയതന്ത്ര പ്രധാന പാത ഏറെ പ്രയോജനം ചെയ്യും ന്യൂസ്ഡസ്ക് ആകാശവാണി

ആരിൽ നിന്നും രോഗം പകരാമെന്ന ജാഗ്രതാ നിർദ്ദ്ദ്്ല്മാണ് ജനങ്ങൾക്ക് മൂന്നാം ഘട്ട കോവിഡ് പ്രതിരോധ ക്യാമ്പെയ്നിൽ നൽകാനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഈ പശ്ചാത്തലത്തിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും അനുബന്ധിച്ചുള്ള കോംപ്പക്സും കൺവെൻഷൻ സെന്ററും കോവിഡ് ഫസ്റ്റ്ലൈൻ ചികിത്സാ കേന്ദ്രമാക്കും

എസ്